ഉരുൾപൊട്ടലുകൾ ഉണ്ടായതായി മുഖൃമന്ത്രി

പ്രവർത്തനങ്ങൾ നടത്തി വരികുയിാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബാണാസൂര സാഗർ ഡിം ഉച്ചക്കഴിഞ്ഞ് മൂന്നു മണിക്ക് തുറക്കും

കോൺഗ്രസ് പ്രവർത്ത്കസമിതിയോഗം ഇന്ന് ഡൽഹിയിൽ

രണ്ടാമത്തെ മത്സരം നാളെ പോർട്ട് ഓഫ് സ്പെയിനിൽ നടക്കും മഴ മുഖ്യമന്ത്രി സംസ്ഥാനത്ത് കാലവർഷക്കെടുതികൾ നേരിടുന്നതിനായി സമഗ്രമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിവരുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

കേന്ദ്രസേന പൊലീസ് ഫയർഫോഴ്സ് സന്നദ്ധപ്രവർത്തകർ മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുവരികയാണ് ഇത് പ്രതിസന്ധിയെ മറികടക്കാൻ ആത്മവിശ്വാസം നൽകുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൃത്യനിർവഹണത്തിനിടയിൽ മരണപ്പെട്ട കെ എസ് ഇ ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ ബൈജുവിന്റെ മരണത്തിൽ ഇന്ന് ചേർന്ന അവലോകനയോഗം അനുശോചനം രേഖപ്പെടുത്തുകയുണ്ടായി

പത്തനംതിട്ട ജില്ലയിൽ കനത്ത മഴയാണ് പമ്പയിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നു

കോഴഞ്ചേരിയിലെ അപകട സാധ്യതാ മേഖലയിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് നാടൊട്ടുക്ക് വലിയ ദുരന്തം നേരിടുമ്പോൾ അതിൽ ഇടപെട്ട് സഹായിക്കാതെ പ്രശ്നങ്ങളെ സങ്കീർണമാക്കുകയും അനാവശ്യ ഭീതി പരത്തുകയും ചെയ്യുന്ന സമീപനം ചിലർ സ്വീകരിക്കുകയാണ് അത്തരം ആളുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കാലവർഷക്കെടുതി സംബന്ധിച്ച് ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിനുശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി മഴ കോഴിക്കോട് കോഴിക്കോട് ജില്ലയിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ ദുരന്തനിവാരണ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ഇന്ന് ജനപ്രതിനികളുടെ യോഗവും വിളിച്ചിട്ടുണ്ട് കോഴിക്കോട് നിന്നും ആകാശവാണി ലേഖകൻ നസീർ ബാബു

നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെള്ളം പമ്പു ചെയ്ത് നാളെ വൈകുന്നേരത്തോടെ വിമാന സർവ്വീസുകൾ പുനരാരംഭിക്കാൻ തീരുമാനിച്ചെങ്കിലും ശക്തമായ മഴയാണ് ഇവിടെയും പെയ്യുന്നത് ആലുവയിലും കൊച്ചി നഗരത്തിലും പെരിയാർ തീരത്തുള്ള പട്ടണങ്ങളിലും കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത്

ജലസംഭരണിയിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്

ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്നതിനാൽ ജനങ്ങൾ ആശങ്ക പെടേണ്ടെന്ന് മന്ത്രി

രവീന്ദ്രനാഥിന്റെ നേതൃത്വത്തിൽ ഇടുക്കിയിൽ ചേർന്ന അവലോകന യോഗം വിലയിരുത്തി

അഗസ്ത്യ വനത്തിൽ മഴ കനത്തിനെ തുടർന്ന് നീരൊഴുക്ക് വർധിച്ചതിനാൽ നെയ്യാർ ഡാമിൽ ജലനിരപ്പ് ഉയർന്നു കരമനയാറും കിള്ളിയാറും നിറഞ്ഞൊഴുകുന്നു

ശക്തമായ കാറ്റിൽ വിവിധയിടങ്ങളിൽ കൃഷിക്കും വീടുകൾക്കും സാരമായ നാശനഷ്ടമുണ്ടായി

ക്യാമ്പുകളിൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിച്ചുവരുന്നു

എന്നാൽ ശക്തിയായി പെയ്യുന്ന മഴ രക്ഷാപ്രവർത്തനത്തിന് സൃഷ്ടിക്കുന്നുണ്ട്

ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ വർഷത്തെ പോലെയുള്ള പ്രളയ ഭീതിയില്ലെങ്കിലും ഇടയ്ക്കിടെ ആഞ്ഞ് വീശുന്ന കാറ്റിൽ മരം വീണ് നിരവധി വീടുകൾക്ക് നാശം വന്നിട്ടുണ്ട്

ഘട്ടംഘട്ടമായി ഷട്ടർ തുറന്ന് മിതമായി ജലം പുറത്തേയ്ക്ക് ഒഴുക്കും ഇതിനാൽ കരമാൻ തോടിലെ ജലനിരപ്പ് ഉയരാൻ ഇടയുണ്ട് ഇരു കരകളിലും ഉള്ള ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു

രാഹുൽഗാന്ധി രാജിവെച്ച ഒഴിവിൽ പുതിയ അധ്യക്ഷനെ നിശ്ചയിക്കാനാണ് ഇന്നത്തെ യോഗം

ഹജ്ജ് ഹജ്ജിന്റെ ഏറ്റവും പ്രധാന കർമ്മമായ അറഫ സംഗമം ഇന്ന്

ഇതോടെ ജില്ലയിൽ മൂന്നു ദിവസത്തിനിടെ മരിച്ചവരുടെ എണ്ണം മൂന്നായി